നദാലും മൂന്നാം റൌണ്ടിലേക്ക്

ധനസഹമന്ത്രി അനുരാഗ് താക്കൂറും മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇന്നലെ ബജറ്റിന്റെ അവസാന മിനുക്കു പണികൾ പൂർത്തിയാക്കി കേന്ദ്രത്തിന്റെ കഴിഞ്ഞ കാലത്തെ വരവ് ചെലവ് കണക്കുകളും വരും വർഷങ്ങളിലെ ആസൂത്രണങ്ങളും ബജറ്റിൽ പ്രതിപാദിക്കുമെന്ന് ഗവൺമെന്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് ബജറ്റ് പ്രഖ്യാപനങ്ങളെ ഉറ്റുനോക്കുന്നത് ബജറ്റ് അവതരണത്തോടനുബന്ധിച്ച് ആകാശവാണി വാർത്താവിഭാഗം ഇന്ന് വിശേഷാൽ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും

ധനകാര്യമന്ത്രി നിർമ്മല സീതാർട്ട്മുന്റെ ബജറ്റ് പ്രസംഗം തത്സമയം പ്രക്ഷേപണം ചെയ്യും

ടിറ്റർഅറ്റ്എയർന്യൂസ് അലർട്ട്സിലൂർ ആക്ടാശവാണിയുടെ ഔദ്യോഗിക ഫെയ്സ്ബുക്ക് പേജായ ആൾ ഇന്ത്യൂറേഡിയോ ന്യൂസിലും ബജറ്റ് പരിപാടികൾ കേൾക്കാം

രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയുടെ സ്ഥിതിവിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമ്പത്തിക സർവേ

അന്താരാഷ്ട്ര നീതി ന്യായ കോടതി പ്രസിഡന്റ് അബ്ദുൾഖാവി അഹമ്മദ് യൂസഫ് വിധി പ്രസ്താവം വായിക്കും

പുതുത്പ്യി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റുംഗങ്ങളുടെ ന്യൂഡൽഹിയിൽ ന്ടുന്ന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി പാർലമെന്റ് നിയമങ്ങളും പാരമ്പര്യവും മനസ്സിലാക്കി മികച്ച അംഗമാകാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ശ്രീ

കൂടുതൽ വിവരങ്ങളുമായി വി ഗോപകുമാർ

കോർപ്പറേറ്റ് മേഖലയിലെ സാമ്പത്തിക തിരിമറികൾ അപകടസാധൃതകളും നിയന്ത്രണവും എന്ന വിഷയത്തിൽ ഇന്നലെ മുംബൈയിൽ നടന്ന ചർച്ചാ സമ്മേളനത്തിൽ റിസർവ്വ് ബാങ്ക് ചീഫ് ജനറൽ മാനേജർ ജയന്ത് ഡാഷാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്

ചടങ്ങിൽ പങ്കെടുത്ത സെബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആനന്ദ് സയ്വാറും സാമ്പത്തിക തിരിമറി നടത്തുന്നതിൽ കുറ്റവാളികളും കോർപ്പറേറ്റ് മാനേജ്മെന്റുകളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുളളതെന്ന് ചൂണ്ടിക്കാട്ടി

സുസിന്ദ്രോയുടെ വീടിന് സമീപം വൻ സ്ഫോടനം

എൽ എ യുടെ വീടിന്റെ പിൻഭാഗത്ത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു

പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിലും മുഴ് എത്തി

മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിലും മഴ ലഭിച്ചു കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്

ഇനിയും കുറഞ്ഞത് അഞ്ചുപേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിച്ചു അതിശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കൊങ്കൺ പ്രദേശത്തെ അണക്കെട്ട് തകർന്നത് സംസ്ഥാന പോലീസും ദേശീയ ദുരന്തനിവാരണ സേനയും ഊർജ്ജിതമായ തെരച്ചിൽ തുടരുകയാണ്

മൂന്ന് മാലി സ്വദേശികളേയും ഒരു ഐവറി കോസ്റ്റ് നിവാസിയേയും തിരസംരക്ഷണ സേന രക്ഷപ്പെടുത്തിയതായി ടൂണീഷ്യൻ വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ ഐവറി കോസ്റ്റ് സ്വദേശി പിന്നീട് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങി രക്ഷപ്പെട്ടുത്തിയതിൽ ഒരു മാലി സ്വദേശിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു

എസ് ജിയോളജിക്കൽ സർവ്വേ അറിയിച്ചു

ഭൂകമ്പത്തെ തുടർന്ന് പലതവണ തുടർ ചലനങ്ങൾ അനുഭവപ്പെട്ടു എന്നാൽ നാശ്രയ്ഷ്ടങ്ങൾ ഒന്നുംതന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല

സി സി ലോകകപ്പ് വിംബിൾഡൺ ടെന്നീസ് വിശേഷങ്ങൾ

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും വൈകിട്ട് മൂന്നിന് ലോർഡ്സിലാണ് മൽസരം അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ പാകിസ്ഥാന് സെമി ഫൈനലിൽ എത്താനാകൂ

ബംഗ്ലാദേശ് ആദ്യം ബാറ്റ് ചെയ്യാനിടയായാൽ ആദ്യ പന്ത് എറിയുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ സെമിക്ക് പുറത്താകും

നാല് വിക്കറ്റെടുത്ത കാർലോസ് ബ്രാത്വെയ്റ്റും മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ കെമാർ റോച്ചുമാണ് അഫ്ഗാനെ തകർത്തത്

വിംബിൾഡൺ ടെന്നീസിൽ റോജർ ഫെഡററും റാഫേൽ നദാലും മൂന്നാം റൌണ്ടിൽ കടന്നു എട്ട് തവണ വിംബിൾഡൺ ചാമ്പ്യനായിട്ടുള്ള ഫെഡറർ ബ്രിട്ടന്റെ ജെയ് ക്ലാർക്കിനെയാണ് തോൽപ്പിച്ചത്